ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ന് ഇളവ് നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനം ഇന്ത്യക്ക് സംബന്ധിച്ച വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇന്ത്യ

സുഖകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന അർബൻ നക്സലുകൾ തങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കിയ ശേഷം ആദിവാസി യുവാക്കളെ ഭീകരപ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ശ്രീ

സമ്പൽസമൃദ്ധമായ ഛത്തീസ്ഗഡ് എന്ന അടൽ ബിഹാരി വാജ്പേയ്യുടെ സ്വപ്നം സാക്ഷാത്കരിക്കാതെ തനിക്ക് വിശ്രമമില്ല എന്നും നക്സൽ ബാധിത ബസ്താർ മേഖലയുടെ വികസനത്തിനായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവണ്മെന്റുകൾ പ്രവർത്തിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു മാവോയിസ്റ്റ് ഭീഷണി ചൂണ്ടിക്കാട്ടി ഗവണ്മെന്റിന്റെ നിഷ്ക്രിയതയെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് എക്കാലവും ചെയ്തിട്ടുള്ളത്

കാങ്കറിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധ്യ് ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഡോണാഗഡിൽ അദ്ദേഹം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ്സിന്റെ തെരഞ്ഞെടുപ്പ് പത്രിക ശ്രീ ഗാന്ധി പ്രകാശനം ചെയ്യും ഛത്തീസ്ഗഡ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നാളെ അവസാനിക്കും

സംസ്ഥാന ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരുമായും എൻ

ഒ ഏകോപന സമിതി പ്രതിനിധികളുമായും സംഘം കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്ത് സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതു സംബന്ധിച്ച വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സ്ഥാനത്തു നിന്നും നീക്കിയതിൽ എൻ

ഒ സംഘടന പ്രതിഷേധമുയർത്തിയിരുന്നു

ഈ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പു് കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തിയത്

വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നോട്ട് അസാധുവാക്കൽ നടപടിയിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടനയെ വൃവസ്ഥാപിതമാക്കുന്നതുൾപ്പെടെയുള്ള ലക്ഷൃങ്ങൾ കൈവരിക്കാൻ സാധിച്ചതായും ബിജെപി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തലമുറകളായി തെറ്റായ മാർഗ്ഗത്തിലൂടെ വാരിക്കൂട്ടിയ കള്ളപ്പണം ഒറ്റദിവസം കൊണ്ട് നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് അവർ നോട്ട് അസാധുവാക്കലിനെ എതിർക്കുന്നതെന്നും ശ്രീ

മൂന്നു ലക്ഷം ഷെൽ കമ്പനികൾ അടച്ചു പൂട്ടിയെന്നും പത്തു വർഷമായിട്ടും എന്തുകൊണ്ടാണ് യു

എ ഗവണ്മെന്റ് ഇതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്നും അദ്ദേഹം ചോദിച്ചു ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടു വീഴ്ച വരുത്തിക്കൊണ്ടുള്ളതാണ് കോൺഗ്രസ് നിലപാടെന്നും അദ്ദേഹം ആരോപിച്ചു എൻഡിഎ ഗവണ്മെന്റ് നടപ്പിലാക്കിയ ചരക്കുസേവന നികുതി നോട്ടസാധുവാക്കൽ എന്നിവ രാജ്യത്ത് വൻവിപത്താണുണ്ടാക്കിയതെന്ന് നേരത്തെ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഛത്തീസ്ഗഡിൽ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാവപ്പെട്ടവരിൽ നിന്നും പണം തട്ടിപ്പറിക്കുക എന്നതാണ് എൻഡിഎ ഗവണ്മെന്റിന്റെ പ്രധാന ഉദ്ദേശ്യഉമന്നും ശ്രീ രാഹുൽഗാന്ധി ആരോപിച്ചു

ആണവ കരാറിൽ നിന്ന് പിന്മാറാനുള്ള ഇറാന്റെ തീരുമാനത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത് ഊർജ്ജ സുരക്ഷ സംബന്ധിച്ച ഇന്ത്യയുടെ ആവശ്യവും വിഷയത്തിലെ താൽപര്യവും അമേരിക്ക കണക്കിലെടുത്തതിനെ രാജ്യം പ്രശംസിക്കുന്നതായി മാധ്യമപ്രവർത്തകരുടെ ചോദൃത്തിന് മറുപടിയായി വിദേശകാരൃവക്താവ് രവീഷ്കുമാർ പറഞ്ഞു ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഉപരോധത്തിൽ ഇളവ് നല്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യും ഉണ്ട് എന്നത് സ്വാഗതം ചെയ്ത വിദേശകാര്യ വക്താവ് ഇറാനിൽ നിന്നും ക്രൂഡ്ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രധാന രാജ്യമാണ് ഇന്ത്യയെന്നും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ സംബന്ധിതച്ച ആവശ്യങ്ങൾക്ക് ഇത് പ്രധാനമാണെന്നും അറിയിച്ചു ഛബഹാർ തുറമുഖത്തിന്റെ നയതന്ത്ര പ്രാധാനൃവും അത് അഫ്ഗാനിസ്ഥാനെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സഹായിക്കും എന്ന വസ്തുതയെയും അമേരിക്ക അംഗീകരിച്ചു എന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു

കൂടുതൽ വിവരങ്ങളുമായി സ്ടുവർണ്ണ

പൌരാവകാശ വാണിജൃ കാര്യങ്ങളിൽ പരസ്പര നിയമസഹായത്തിനായി ഇന്ത്യയും മൊറോക്കോയും തമ്മിൽ കരാർ ഒപ്പിടുന്നതിനു കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുമതി നൽകി സൌഹൃദവും ഫലപ്രദമായ സഹകരണവും ശക്തിപ്പെടുത്തുക എന്ന ഇരു രാജ്യങ്ങളുടെയും താൽപര്യം യാഥാർഥ്യമായിത്തീരും

ന്യൂസ് ഡസ്ക് ആകാശവാണി

എൽ ്എ മുസ്ലീം ലീഗിലെ കെ

തിരഞ്ഞെടുപ്പിൽ വർഗ്ഗീയ പ്രവർത്തനം നടത്തിയെന്ന പരാതിയിലാണ് ഹൈക്കോടതി വിധി സ്ഥാനാർത്ഥിയായിരുന്ന എൽ

എഫിന്റെ എതിർ നികേഷ് കുമാറിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി വിധി

കോൺഗ്രസ് നേതൃത്വം നല്കുന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ് മുസ്ലീംലീഗ് വിധിയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിക്കുമെന്ന് ലീഗ് പറഞ്ഞു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

വെസ്റ്റിൻഡീസാണ് നിലവിലെ ചാമ്പ്യന്മാർ ഓസ്ട്രേലീയ് മൂന്ന് തവണ കിരീടം നേടിയിട്ടുണ്ട്

അയൽരാജ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇന്ത്യയുടെ നയതന്ത്രനയത്തിന്റെ അടിസ്ഥാനത്തിൽ മാലദ്വീപുമായി സഹകരണം ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തശേഷം പ്രധാനമന്ത്രി അന്നു തന്നെ മടങ്ങിയെത്തും

ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശവും നല്കിയിട്ടില്ല എന്ന് കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറി എസ്

സാമ്പത്തിക മേഖലയിലെ ഗവണ്മെന്റിന്റെ ചുവടുവയ്പ്പുകൾ ശരിയായ ദിശയിലേക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഗാർഗ് ചൂണ്ടിക്കാട്ടി